രാജ്യത്തെ സ്വയംസഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫെറൻസിംഗ് വഴി കൂടിക്കാഴ്ച നടത്തും

ഇന്റർനെറ്റ് സേവനങ്ങൾ തടസങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാതെ ലഭൃമാക്കുന്നതിനുള്ള ഇന്റർനെറ്റ് സമത്വം രാജ്യത്ത് നടപ്പാക്കാൻ ടെലികോം കമ്മീഷൻ അംഗീകാരം നൽകി

കേരളത്തിൽ കനത്ത മഴ ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

ഫിഫ ലോകകപ്പ് ഫുട്ബോൾ സെമിയിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ക്രൊയേഷ്യ ഫൈനലിൽ

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

സ്വയംസഹായ സംഘർട്ടൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി പ്രിയാനമന്ത്രി അംഗങ്ങളുമായി ചർച്ച നടത്തും ദൂരദർശനിലും എൻ

ബീഹാറിൽ മദ്യവിരുദ്ധ പ്രചാരണം നടത്തുന്ന സംഘം ഛത്തീസ്ഗഡിൽ ഇഷ്ടിക നിർമാണം നടത്തുന്ന സ്ഥാപനം എന്നിവയും ഇതിൽ ഉൾപ്പെടും ദീൻ ദയാൽ അന്ത്യോദയ ജോജന ദേശീയ ഉപജീവന മിഷൻ തുടങ്ങിയ വഴി ഗ്രാമീണ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കാണ് ഗവൺമെന്റ് മുൻതൂക്കം നൽകുന്നതെന്ന് ഗ്രാമവികസന മന്ത്രി നരേന്ദ്ര തോമർ ആകാശവാണിയോട് പറഞ്ഞു

ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന വഴി അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം ഗ്രാമീണ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമായി രാജ്യത്തെ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്താനാണ് ഈ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ശ്രീ

ന്യൂസ് ഡസ്ക് ആകാശവാണി

എല്ലാ അത്യാധുനിക സൌകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇടിമിന്നലിനെ ചെറുക്കാനും മഴവെള്ള സംഭരണത്തിന് സൌകര്യമുള്ളതുമാണ് പുതിയ കെട്ടിടം ഒന്നരലക്ഷം പുസ്തകങ്ങളും രേഖകളും അടങ്ങിയ സെൻട്രൽ ആർക്കിയോളജിക്കൽ ലൈബ്രറിയും ഈ മന്ദിരത്തിൽ ഉണ്ട്

സേവനദാതാക്കൾ ഉള്ളടക്കം അനുസരിച്ച് സേവനങ്ങൾ തടയുക മന്ദഗതിയിലാക്കുക ഉയർന്ന വേഗത നൽകുക എന്നിങ്ങനെ വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് ടെലികോമിലെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പരമോന്നത കമ്മീഷന്റെ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

ഗവൺമെന്റ് പ്രതിനിധികൾ അടക്കമുള്ളവരുടെ ്നിരീക്ഷക സമിതിക്ക് ഇതിനായി രൂപം നൽകുമെന്നും അവർ വ്യക്തമാക്കി

പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പു കേസിലാണ് ഇ ഡി വിഭാഗം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക കോടതിയെ സമീപിച്ചത്

പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ചില ഉദ്യോഗസ്ഥരും ഇരുവർക്കുമൊപ്പം കേസിൽ പ്രതികളാണ്

ഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്

ഉപ്പിയോക്താക്കളിൽ നിന്നും സേവന നികുതിയായി മൂന്നു കോട്ടി രൂപ ്ഈടാക്കിയ കമ്പനി പക്ഷേ ആ തുക അടയ്ക്കാൻ തയ്യാറായില്ല

പരിധിയിൽ കുടൂതൽ നികുതി ഇൌടാക്കിയതിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ജി

ടി കമ്മീഷണറേറ്റ് അറിയിച്ചു

മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് കടലിൽ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി കോഴിക്കോട് മലപ്പുറംപാലക്കാട് വയനാട് ജില്ലകൾക്ക് പൊതുവെയും ചേർത്തല താലൂക്കിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ അയ്മനം ആർപ്പൂക്കര തിരുവാർപ്പ് കുമരകം ഗ്രാമപഞ്ചായത്തുകളിലെയും കോട്ടയം മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും

ദുഷ്കര മേഖലകളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് മെഡലുകൾക്ക് പരിഗണിക്കുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ മെഡൽ പൊലീസ് അന്താരിക് സുരക്ഷ സേവാ പതക് അസാധാരൺ അസൌചന കുഷലത പതക് ഉൽകൃഷ്ട് അതി ഉൽകൃഷ്ട് സേവാമെഡൽ അന്വേഷണ മികവിനുള്ള പുരസ്കാരം എന്നിവയാണ് മെഡലുകൾ

ജനീവയിൽ വാണിജ്യവും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്രസമ്മേളന ത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

അമേരിക്കൻ ഉപരോധം നടപ്പാക്കിയാൽ ന്യൂഡ്ൽഹിക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ നിർത്തലാക്കുമെന്ന് പറഞ്ഞതിനു തൊട്ടുപിന്നാലെയാണ് ഇറാനിയൻ എംബസി ഇക്കാര്യം വ്യക്തമാക്കിയത് അസ്ഥിരമായ ഊർജ്ജവിപണിയെ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇറാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ എംബസി വ്യക്തമാക്കി ഇന്ത്യയ്ക്കുള്ള എണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് അയവുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും എംബസി വ്യക്തമാക്കി

ഡൽഹി കാൺപൂർ വാരണാസി എന്നീ നഗരങ്ങളിൽ ഉൾപ്പെടെ പദ്ധതി നടപ്പാക്കും ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കാനാണ് ബ്രീത്ത് ഇന്തൃ എന്ന പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് സ്വകാര്യ ഡീസൽ വാഹനങ്ങൾ നിയന്ത്രിക്കും കാലപ്പഴക്കം ചെന്നതും ഉപയോഗം കുറഞ്ഞതുമായ പദ്ധതികൾ ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ളവ നടപ്പാക്കും

മൂന്ന് മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്